കേന്ദ്ര ആഭ്യന്തരമന്ത്രി

സിഡ്നിയിൽ

എസ് എല്ലിൽ മൂന്നാം പോരാട്ടത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും

കർഷകരുട്ടി എല്ല്ം പ്രശ്നങ്ങളും ആവശ്യങ്ങളും സസൂക്ഷ്മം പരിശോധിക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ അമിത്ഷാ അറിയിച്ചു

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി തൽസമയം പ്രക്ഷേപണം ചെയ്യും

തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത് കേൾക്കാം

ഇന്ത്യയുടെ ചെയർമാൻഷിപ്പിൽ നടക്കുന്ന ആദ്യസമ്മേളന തല യോഗമാണിത്

ഒയുടെ വാർഷിക യോഗങ്ങൾ പ്രധാനമന്ത്രിമാരുട്ട് അദ്ധ്യക്ഷതയിൽ നടക്കാറുണ്ട്

ഒക്ക് ഇന്ത്യ വലിയ് പരിഗണനയാണ് നൽകുന്നതെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു

പ്രാദേശിക ഉത്പന്നങ്ങൾക്കായി ശ്ബ്ദമുയർത്തുക എന്ന മന്ത്രം ജനങ്ങൾ പിന്തുടർന്നാൽ മാത്രമേ സൃഷ്ടം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനാകൂ ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് ഫ്രീപ്പണി കണ്ടെത്താനാകുന്നതും ഇന്ത്യക്ക് നൂതന സാങ്കേതിക വിദൃ ് ഉത്പന്നങ്ങൾ പ്രദാനം ചെയ്യുന്നതുമായ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ എത്തിച്ചേരേണ്ടതിന്റെ പ്രാധാന്യവും മന്ത്രി ചൂണ്ടിക്കാട്ടി അംഗരാജ്യങ്ങളിൽ ചിലർ സുതാര്യ വ്യാപാര ശീലങ്ങളുള്ള ജനാധിപത്യ രാജ്യങ്ങൾ അല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ ആർ

ഇന്ത്യയുടെ കർഷകർ ശക്തരാക്കാനും രാജ്യത്തെവിടെയും തങ്ങളുടെ ഉത്പന്നങ്ങൾ വിപണനം ചെയ്യാനും തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇന്ത്യൻ റെയിൽവേ വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

ജയശങ്കറിന്റെ രണ്ടു ദിവത്തെ സീഷെൽസ് സന്ദർശനം ഇന്നലെ പൂർത്തിയായി ഇന്ത്യയുടെ അയൽക്കാർ ആദ്യം സാഗർ എന്നീ നയങ്ങളിൽ സീഷെയ്ൽസിന് മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് സീഷെൽസ് പ്രസിഡന്റ് വേവൽ രാംകലവാന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി സുരക്ഷാ സഹകരണം വികസന പങ്കാളിത്തം ജനങ്ങൾക്കിടയിലെ ബന്ധം വർദ്ധിപ്പിക്കുക എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ

ജയശങ്കർ ട്വീറ്റ് ചെയ്തു

സമുദ്ര സുരക്ഷ സംബന്ധിച്ചുള്ള സമകാലിക വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി ഇതിന് പുറമെ ദുരന്ത നിവാരണം സംയുക്ത അഭ്യാസങ്ങൾ കടലിലെ മലിനീകരണം അതിർത്തി നിർണ്ണയം എന്നിവയെപ്പറ്റിയും യോഗം വിശകലനം ചെയ്തു

ഈ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കണക്ക് പ്രകാരമാണിത് പ്രധാനമന്ത്രി തുടക്കമിട്ട മെയ്ക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ഇന്ത്യയെ ലോകത്തിന്റെ വ്യവസായ കേന്ദ്രമാക്കി മാറ്റുക എന്നു ലക്ഷ്യത്തിന്റെ വേഗം വർദ്ധിപ്പിച്ചതായും ശ്രീ ജാവ്ദേക്കർ ട്ടിറ്റ്റിൽ കുറിച്ചു

സൌമൃ സ്വാമിനാഥൻ

എന്നാൽ മാസ്ക് സാമൂഹിക അകലം് വൃക്തി ശുചിത്വം എന്നിവ തന്നെയായിരിക്കും ഏറ്റവും നല്ല പ്രതിരോധമാർഗ്ഗങ്ങൾ പൊതു സ്ഥലങ്ങളിൽ തുപ്പരുത് മാസ്കുകൾ യഥാവിധം ധരിക്കണമെന്നും ഡോ

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇറ്റലി പോളണ്ട് ബ്രിട്ടൺ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അഞ്ഞൂറിലേറെ പേർ ഇന്നലെ മരിച്ചു

ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുകയും രണ്ട്രാർ മത്സരത്തിൽ സമനില വഴങ്ങുകയും ചെയ്ത സങ്കടത്തിലിറ്റ് ബ്ലാസ്റ്റേഴ്സ് അതിനാൽ ഇന്ന് വിജയത്തിൽ കുറഞ്ഞത്തി്ണും ടീം ലക്ഷ്യമിടുന്നില്ല

ഇത് തുടർച്ചയായ ആറാം ദിവസമാണ് ഇന്ധനവില വർദ്ധിച്ചത്

രണ്ടു ഷിഫ്റ്റുകളായാവും കോടതിയിൽ വാദം കേൾക്കുക കോവിഡ് സാഹചര്യത്തിൽ വീഡിയോ ലിങ്കിലൂടെയാണ് ബോംബെ ഹൈക്കോടതി വാദം കേൾക്കുന്നത്

പ്രാദേശിക തലസ്ഥാനമായക്ക് മെക്കല്ലെയുടെ പൂർണ്ണ നിയന്ത്രണം സർക്കാർ സേന എട്ടിച്ച്ചടുത്തതായി അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എ്ന്നുൾ കഴിഞ്ഞ മൂന്നാഴ്ചയായി എത്യോപ്യൻ സൈനികര്മോട്ട് പോരാടുന്ന ടിഗ്രേ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് ഇത് സർബ്ന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല